ത ഗവൺമെന്റ് ലാബുകളിലും അംഗീകൃത സ്വകാര്യ ലാബുകളിലും കോവിഡ് പരിശോധന സൌജന്യമാക്കണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശം

ആദിവാസി ഭക്ഷ്യ വിഭാഗങ്ങൾക്കായിരിക്കും ഇന്ന് കിറ്റുകൾ വിതരണം ചെയ്യുക എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും വരും ദിവസങ്ങളിൽ കിറ്റ് വിതരണം ചെയ്യും

ദേദ ആശുപത്രികളിൽ അടിയന്തര ചികിത്സകൾക്ക് രക്തം ലഭ്യമാക്കാൻ രക്തദാനത്തിന് സന്നദ്ധരായവർ മുന്നോട്ടു വരണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭ്യർത്ഥിച്ചു മൊബൈൽ യൂണിറ്റുകൾ വഴിയായിരിക്കും രക്തശേഖരണം

പച്ചക്കറിയുടെയും മറ്റ് സാധനങ്ങളുടെയും ലഭ്യത വർദ്ധിക്കും

കഴിയുന്നത്ര പരീക്ഷകളും മൂല്യനിർണ്ണയവും ഓൺലൈൻ വഴി ആക്കുന്നതിന്റെ സാധ്യത പരിശോധിക്കാൻ വിദ്യാഭ്യാസ വകുപ്പിനോടും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ദരദ കോവിഡ് പ്രതിരോധത്തിനും ചികിത്സയ്ക്കും ആയുർവേദം ഉപയോഗപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു

എല്ലാവർക്കുമായി ലഘു വ്യായാമത്തിന് സ്വാസ്ഥ്യം പദ്ധതിയും നടപ്പാക്കും

കണ്ണൂർ ജില്ലയിൽ നാല് പേർക്കും ആലപ്പുഴ ജില്ലയിൽ രണ്ട് പേർക്കും പത്തനംതിട്ട തൃശൂർ കാസർകോട് ജില്ലകളിൽ ഓരോരുത്തർക്കുമാണ് രോഗം ബാധിച്ചത് ഇതിൽ നാല് പേർ വിദേശത്തു നിന്നും രണ്ട് പേർ നിസാമദ്ദീനിൽ നിന്നും വന്നവരാണ് മൂന്ന് പേർക്ക് സമ്പർക്കത്തിലൂടെയും രോഗമുണ്ടായി

നേരത്തെ രോഗബാധിതനായ ആളുടെ അടുത്ത ബന്ധുവിനാണ് രോഗം എന്നാൽ കോവിഡ് ബാധിച്ച് ചികിത്സയിലായിരുന്ന മൂന്ന് പേർ രോഗം ഭേദമായി ഇന്നലെ ആശുപത്രി വിട്ടു

ഇവരെ സ്വന്തം സ്ഥലങ്ങളിലേക്കു വൈകിട്ട് പ്രത്യേക കെ

ടി

അതിനിടെ സമൂഹവ്യാപനമുണ്ടായാൽ രോഗികളെ ചികിത്സിക്കുന്നതിന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി കോവിഡ് ആശുപത്രിയായി പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചു

നിസാമുദീൻ സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരാൾക്കും ദുബായിൽ നിന്ന് തിരിച്ചെത്തിയ ഒരാൾക്കുമാണ് രോഗബാധ

നിരീക്ഷണത്തിലായിരുന്നു ഇയാളെ മെഡിക്കൽ കോളജിലേക്ക് മാറ്റും

ഇരുവർക്കും രോഗലക്ഷണങ്ങൾ ഉണ്ടായിരുന്നില്ല

ഇന്നലെ ആരെയും ആശുപത്രിയിൽ നിരീക്ഷണത്തിനായി നിർദേശിച്ചില്ല ഒരാളെക്കൂടി ഒഴിവാക്കിയതോടെ മൂന്നുപേരാണ് ജില്ലയിൽ ആശുപത്രികളിൽ കഴിയുന്നത്

കൊല്ലം ജില്ലയിൽ ആറുപേരാണ് കോവിഡ് പോസിറ്റീവായി ചികിത്സയിൽ കഴിയുന്നത്

ദുബായിൽനിന്ന് മടങ്ങിയെത്തിയ ഇടപ്പാവൂർ സ്വദേശിക്കാണ് കോവിഡ് ബാധിച്ചത്

ദുദ കൊറോണ വ്യാപനത്തിന്റെ ഹോട്ട്സ്പോട്ടായി കരുതുന്ന നിസാമുദ്ദീൻ സമ്മേളനത്തിൽ പങ്കെടുത്ത കോഴിക്കോട് ജില്ലയിലെ നാലുപേർക്കാണ് കൊറോണ സ്ഥിരീകരിച്ചത് രോഗം കൂടുതൽ പേരിലേക്ക് പകരാതിരിക്കാനും സമ്പർക്കം നിയന്ത്രിക്കാനും കോർപ്പറേഷൻ പരിധിയിലെ ഏഴ് വാർഡുകളിലും സമീപ പഞ്ചായത്തിലെ ഏതാനും വാർഡുകളിലും വാഹന ഗതാഗതം നിരോധിച്ചു

വയനാട് ജില്ലയ്ക്ക് ആശ്വാസമായി ആദ്യ രണ്ട് രോഗികൾ ആശുപത്രി വിട്ടു ജില്ലയിൽ മൂന്നുപേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നത്

ഇതു സംബന്ധിച്ച നിർദ്ദേശങ്ങൾ ഉടൻ നൽകണമെന്നും ഡിവിഷൻബെഞ്ച് ആവശ്യപ്പെട്ടു പൊതുതാത്പര്യ ഹർജിയിലാണ് കോടതിയുടെ നിർദ്ദേശം

തിരുഅത്താഴത്തിനു മുമ്പ് യേശുദേവൻ ശിഷ്യരുടെ പാദങ്ങൾ കഴുകി അവരെ എളിമയുടെയും സാമൂഹ്യ സേവനത്തിന്റെയും മാതൃക കാണിച്ചുകൊടുത്തുവെന്നാണ് വിശ്വാസം കോവിഡ് സാഹചര്യത്തിൽ വൈദികർ മാത്രം പങ്കെടുക്കുന്ന പ്രാർത്ഥനകളും ചടങ്ങുകളുമായിരിക്കും ദേവാലയങ്ങളിൽ സംഘടിപ്പിക്കുന്നത് കാൽകഴുകൽ ശുശ്രൂഷയിലും വിശുദ്ധവാര കർമ്മങ്ങളിലും വിശ്വാസികളെ പങ്കെടുപ്പിക്കാതെ ചടങ്ങുകൾ നടത്താൻ വിവിധ ക്രൈസ്തവ സഭകൾ നിർദ്ദേശം നല്കി